യോജിപ്പുള്ളതും ഉത്തരവാദിത്വം ഉള്ളതുമായ ആസിയാൻ എല്ലാവരുടെയും സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും പ്രധാനമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു സാംസ്കാരികമായും ഭൌമശാസ്ത്രപരമായ ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള ബ്ദ്ധം വളരെ വലുതാണ് ആസിയാനുമായി ഭൌതികമായും സാന്ധിത്തിക്മായും സാമൂഹികമായും ഡിജിറ്റൽ പരമായും ഉള്ള ബന്ധം ആണ് ഇന്ത്യയുടെ പ്രഥമപരിഗണന എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് കുറച്ചുവർഷങ്ങളായി ഇന്ത്യയും ആസിയാനും ഈ മേഖലക്ക്ളിൽ ബന്ധം വർധിപ്പിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

രാജ്യത്തെ യുവാക്കൾക്ക് എന്നും പ്രചോദനമാണ് സ്വാമി വിവേകാനന്ദന്റെ ജീവിത ലക്ഷ്യങ്ങളും

മൂന്നാം സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര മന്ത്രി വിശദാംശങ്ങളുമായി കരോൾ എട്ടി വോയിസ് പി എം ഐ സൂചിക ഉൽജ്ജ ഉപഭോഗം ചരക്കുസേവന നികുതി വരുമാനം ബാങ്ക് വായ്പ്പ് വിദേശ നിക്ഷേപം എന്നിവയിലെ വർധന രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നത്തിന്റെ സൂചനയാണ് എന്ന് ശ്രീമതി സീതാരാമൻ പറഞ്ഞു

കോവിഡാനന്തര കാലഘട്ടത്തിൽ ആത്മ നിർഭർ റോസ്ഗാർ എന്ന പുതിയ പദ്ധതിയിലൂടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

ബെഗുസരായി ജില്ലയിലെ കബർത്താൽ തണ്ണീർത്തടം സംസ്ഥാനത്തെ ആദ്യ റാംസാർ സംരക്ഷിത കേന്ദ്രമായി മാറിയതായി അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

സർക്കാർ രൂപീകരിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ പുതിയ ആരംഭിച്ചതായി ജെഡിയു ജനറൽ സെക്രട്ടറി കെ

ഇന്ന് നടക്കുന്ന യോഗത്തിൽ പാർട്ടിയിലെ വിജയികളായവരുമായി ശ്രീ നിതീഷ് കുമാർ ചർച്ച നടത്തും

ഉത്തരാഖണ്ഡ് ഭരണകൂടം ഡെറാഡൂൺഹരിദാർ ഋഷികേശ് ഹൽദാനി രുദ്ര പൂർ കാശി പൂർ എന്നിവിടങ്ങളിലാണ് പരിസ്ഥിതി സൌഹൃദ പടക്കങ്ങളുടെ വിൽപ്പന അനുവദിച്ചത്

ഇന്ന് കൃത്ത്ൽ സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാം അതത് തദ്ദേശ്ശ് സ്ഥയംഭരണ സ്ഥാപനങ്ങളുടെ വരണാധികാരികൾക്കോ ഉപട്ടവർണാധികാരികൾക്കോ മുന്നിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്

ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും ഇതുവരെ ജീവഹാനിയോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സേനാ വക്താവ് കേണൽ ദാവീന്ദർ അനന്ദ് അറിയിച്ചു